ജെ

കേസിൽ എൻ ഐ എ രാജ്യത്തെ എട്ട് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി

സിന്ധുവും കെ ശ്രീകാന്തും സൈനാ നെഹ്വാളും ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിൽ കടന്നു

കേരളത്തിന് വിജയത്തുടക്കം

പിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പ്രവർത്തകരുടെ താൽപര്യമനുസരിച്ചാണ് ബി ജെ

ജനാധിപത്യമൂല്യങ്ങൾ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ഏകപാർട്ടി ബി ജെ പിയാണെന്നും അദ്ദേഹം പറഞ്ഞു ബാരാമതി ഗദ്ചിരോലി ഹിങ്കോലി നാൻദദ് നാൻദർബാർ എന്നിവിടങ്ങളിലെ ബൂത്ത് പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണമനുവദിച്ച ഗവൺമെന്റ് തീരുമാനത്തെ കോൺഗ്രസ് കോടതിയിലൂടെ എതിർക്കുകയാണെന്നും ശ്രീ മോദി ആരോപിച്ചു

സംഗമം ഹനുമാൻ ക്ഷേത്രം പുതുതായി സ്ഥാപിച്ച സംയോജിത കമാൻഡ് എന്നിവയും പ്രവിന്ദ് ജഗന്നാഥ് സന്ദർശിക്കും കുംഭമേളയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇന്ത്യൻ കരകൌശല മേള നടക്കുന്ന സംസ്കൃതി ഗ്രാമവും കലാഗ്രാമവും പ്രവാസി അതിഥികൾ സന്ദർശിക്കും അതിഥികളെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുംഭമേള ഡി ഐ ജി കെ

സിംഗ് അറിയിച്ചു

ഐ

ഫലാഹ് ഐ ഇൻസാനിയറ്റ് ഫൌണ്ടേഷൻ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന ഉത്തർപ്രദേശിലെ ഗോണ്ട രാജസ്ഥാനിലെ സികാർ ജയ്പൂർ ഡൽഹി ഗുജറാത്തിലെ വത്സാഡ് സൂററ്റ് കേരളത്തിലെ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് അന്വേഷണം നടത്തിയത്

കേസിൽ ഉൾപ്പെട്ട മറ്റുളളവർക്ക് വേണ്ടിയുളള തെരച്ചിൽ തുടരുകയാണ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജമാ അത്ത് ഉദ്ദവാ ബന്ധമുളളതും ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ മുന്നണി പോരാളി സംഘടനയാണ് എഫ് ഐ

ആർ

യുടെ കലാം സാറ്റ് മൈക്രോ സാറ്റ് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം ഇന്ന് നടക്കും

എൽ വി

വിക്ഷേപത്തിന്റെ കൌണ്ട് ഡൌൺ പുരോഗമിക്കുന്നു

വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ് ഉപഗ്രഹമെന്ന് കലാംസാറ്റ് സ്പേസ് കിഡ്സ് ദൌതൃങ്ങളുടെ ഡയറക്ടർ ഡോ

ഇന്ത്യൻ ബഹിരാകാശ പരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മികച്ച അവസരമാണ് കൈവന്നിരിക്കുന്നതെന്നും അവർ പറഞ്ഞു

തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇക്കാര്യത്തിൽ സാങ്കേതിക വിദഗ്ദ്ധന്റെ സഹായത്തോടെ പ്രശ്നം പരിഹരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്

എസ് ഹാക്കർ അവകാശപ്പെട്ടിരുന്നു

പൊതുപ്പുക്കിരഞ്ഞെടുപ്പുകളിലെ അനുഭവങ്ങൾ പ്രതിനിധികൾ പങ്കുവയ്ക്കും തിരഞ്ഞെടുപ്പ് കമ്മിഷന്റെ മാഗസിൻ വോയിസ് ഇന്റർനാഷണൽ ചടങ്ങിൽ പ്രകാശനം ചെയ്യും

മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ ദൂരദർശനും സംപ്രേഷണം ചെയ്യും

മികച്ച ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ ആശയം കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാ്ലയം ഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും

കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി മേനകാഗാന്ധി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും പദ്ധതിക്ക് മികച്ച പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകിയ അഞ്ച് സംസ്ഥാനങ്ങളിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയും കമ്മീഷണർമാരെയും മന്ത്രി ആദരിക്കും

പദ്ധതിയുടെ വിപൂലീകരണ സ്കീം കഴിഞ്ഞവർഷം മാർച്ച് എട്ടിന് രാജസ്ഥാനിലെ ജൂനിജൂനുവിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു

പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും അതിലൂടെ അവരുടെ ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി പരിപാടികളാണ് നടപ്പാക്കിവരുന്നത്

ആഗോളതലത്തിൽ പ്രവാസി ഇന്ത്യൻ സമൂഹം ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും അവർ നമ്മുടെ രാജൃത്തിന്റെ സാംസ്ക്കാരിക പ്രതിനിധികളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു

മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ സ്വച്ഛ് ക്ട്രിക്ക് സ്കിൽ ഇന്ത്യ പദ്ധതികളിൽ നിക്ഷേപം നടത്താനും വികസ്ന് പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാനും അദ്ദേഹം പ്രവാസി ഭാരത്വീയിട്ട് ൻമൂഹത്തോട് ആഹ്വാനം ചെയ്തു

കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അസാന്നിധ്യത്തെ തുടർന്നാണ് പീയുഷ് ഗോയലിന് ചുമതല നൽകിയത് നിലവിലുള്ള ചുമതലകൾക്കു പുറമെയാണിതെന്ന് രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനത്തിൽ അറിയിച്ചു വീണ്ടും ചുമതലയേൽക്കുന്നതുവരെ അരുൺ ജെയ്റ്റ്ലി വകുപ്പില്ലാ മന്ത്രിയായി തുടരും

സിന്ധു കിടംബി ശ്രീകാന്ത് സൈന നെഹ്വാൾ എന്നിവർ പ്രീ കാർട്ടറിൽ കടന്നു വനിതാ സിംഗിൾസിന്റെ ആദ്യമത്സരത്തിൽ സിന്ധുചൈനയുടെ ലീ സുറുവിനെ പരാജയപ്പെടുത്തി

സൈന മറ്റൊരു കളിയിൽ നാട്ടുകാരിയായ ഡിനാർഡ്യാ ആയിസ്റ്റിനെ തോൽപിച്ചു പുരുഷ സിംഗിൾസിൽ എട്ടാം സീഡ് ശ്രീകാന്ത് മലേഷ്യൻ താരം ചോങ്ങ് വീ ഫെൻങ്ങിനെ പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടർ മത്സരം ഇന്ന് നടക്കും

തുലൃശക്തികളുടെ ആവേശകരമായ മത്സരത്തിൽക് പ്രോത്സാഹനവും ആർപ്പു വിളികളുമായി കാണികൾ കേരള ടീമിന് പ്പൂർണ്ണ് പിന്തുണ നൽകി ഇന്ന് അഞ്ചു മണിക്ക് നടക്കുന്ന മത്സരത്തിൽ കേരളത്തിന്റെ എതിരാളികൾ ഗുജറാത്താണ്

വനിതാ സിംഗിൾസിൽ ജപ്പാന്റെ നവോമി ഒസാക്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന പ്തിസ്കോവയെ നേരിടും മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പെട്ര കിറ്റോവ അമേരിക്കയുടെ ഡാനിലെ റോസ് കോളിൻസുമായി മത്സരിക്കും

ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രധാൻമന്ത്രി മാതൃവന്ദനാ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനം പശ്ചിമ ബംഗാളിലെ വനിതകൾക്ക് ലഭിക്കുന്നില്ലെന്ന് മേനകാഗാന്ധി കുറ്റപ്പെടുത്തി